കേന്ദ്ര കുടിവെള്ള ശുചീകരണ മന്ത്രാലയത്തിന്റെ ആഭിമുഖൃത്തിൽ നടത്തുന്ന ശുചിത്വ സർവേയ്ക്ക് തുടക്കം

ഇന്ത്യ വൈകിട്ട് ഇംഗ്ലണ്ടിനെ നേരിടും

സർവ്വേ ഈ മാസം അവസാനം വരെ നീണ്ടു നിൽക്കും

ശുചിത്വഭാരതം പടുത്തുയർത്താനുള്ള ശ്രമങ്ങൾക്ക് സർവേ കരുത്ത് പകരുമെന്നും ടിറ്റർ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു ശുചിത്വ നിലവാരത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യത്തെ ജില്ലകൾക്ക് റാങ്കും നൽകും അടുത്ത വർഷം ഒക്ടോബർ രണ്ടോടെ പ്രാവർത്തികുമാകുന്ന ക്സീൻ ഇന്ത്യ പദ്ധതിക്ക് സർവേ ഗുണകരമാകുമെന്ന് കർുതുന്നു

ബി ഐ ഗവർണർ ഉർജിത് പട്ടേലിന്റെ നേതൃത്വത്തിലുള്ള മൂന്നു ദിവസത്തെ ധനകാര്യ നയ കമ്മിറ്റി യോഗം മുംബൈയിൽ തിങ്കളാഴ്ച ആരംഭിച്ചിരുന്നു നയം സംബന്ധിച്ചു കാര്യങ്ങളാണ് യോഗം ചർച്ച ചെയ്യുന്നത്

പാർലമെന്റിനു പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ശ്രീ

രജിസ്ട്രേഷൻ നടപടികളെ വിമർശിച്ച തൃണമുൽകോൺഗ്രസ് അധൃക്ഷ മമതാ ബാനർജിയെയും അദ്ദേഹം വിമർശിച്ചു ഇന്ത്യക്കാർക്ക് ഒപ്പമാണോ നുഴഞ്ഞുകയറ്റക്കാർ ക്കൊപ്പമാണോ കോൺഗ്രസും തൃണമുൽകോൺഗ്രസും നിൽക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്നും ശ്രീ

നിലവിൽ അഭയാർത്ഥികൾക്കുള്ള ്അവകാശം നൽകാത്ത സാഹചര്യത്തിൽ കുടിയേറ്റക്കാരായാണ് റോഹിംഗ്യൻ വംശജരെ കാണുന്നത് അനധികൃത കുടിയേറ്റക്കാർക്ക് ഒരു തരത്തിലുമുള്ള ഗവൺമെന്റ് ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ബിന്ദു വിവിധ സേവനങ്ങളും ആനുകൂല്യങ്ങളും സബ്സിഡികളും ലഭിക്കുന്നതിനുള്ള പ്രാധാന്യമേറിയ തിരിച്ചറിയൽ കാർഡാണ് ആദാർ എന്നും അതുകൊണ്ടു തന്നെ ഇത്തരത്തിൽ ഉള്ള പ്രവർത്തികൾ നിയമവിരുദ്ധമാണെന്നും യു

സാമൂഹ്യ മാധ്യമങ്ങളിലും അധികൃതർ ഇന്റർനെറ്റിലും മറ്റും ചിലർ ആധാർ കാർഡുകൾ ചിത്രസഹിതം പ്രദർശിപ്പിക്കുന്നത് കണക്കിലെടുത്താണ് നിർദ്ദേശം നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾ ഉചിതമല്ലെന്ന് അധികൃതർ അറിയിച്ചു മാധ്യമങ്ങളിലൂടെ അതോറിറ്റി നിരന്തരം ക്യാമ്പെയിനുകൾ നടത്തിവരികയാണെങ്കിലും ചില വ്യക്തികൾ അത് മറികടന്ന് വിവരങ്ങൾ പുറത്തൂപ്പിടു്കയാണ് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് അല്ലാതെ ആധാർ നമ്പർ പുറത്തുവിടുന്നത് ദുരുപയോഗത്തിനിടയാക്കുമെന്നും അതോറിറ്റി മുന്നറിയിപ്പ് നൽകി മറ്റുള്ളവരുടെ ആധാർ ന്യൂർ ഉപയോഗിക്കുന്നവർക്കും ആധാർ നിയമപ്രകാരം നടപടി നേരിടേണ്ടിവരുമെന്നും യു ഐ ഡി എ

ഡൽഹിയിൽ ട്രായ് ചെയർമാൻ ആർ എസ് ശർമ്മ ആ ധാർ വിവരങ്ങൾ പരസ്യമാക്കിയതിനെ തുടർന്ന് അദ്ദേഹത്തിന്റെ പാൻ നമ്പറും മറ്റും ചില ഹാക്കർ മാർ ചോർത്തിയിരുന്നു ന്യൂസ്ഡെസ്ക് ആകാശവാണി

ചിദംബരത്തെ അറസ്റ്റ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഒന്ന് വരെ വിലക്കിയിരുന്നു

മീൻപിടുത്തക്കാരെ മോചിപ്പിക്കുന്നതിനായി പ്രവർത്തിച്ച ഇറാനിലെ ഇന്ത്യൻ എംബസിയെയും കോൺസുലേറ്റിനെയും കേന്ദ്രമന്ത്രി ട്വിറ്ററിലൂടെ പ്രശംസിച്ചു

ജനങ്ങൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും ഇപ്പോഴില്ല എന്ന് മന്ത്രി വൃക്തമാക്കി മുൻകൂട്ടി അറിയിപ്പ് നൽകിയ ശേഷമേ ട്രയൽ റൺ നെട്ടത്തുകയോ ഷട്ടറുകൾ തുറന്നുവിടുകയോ ചെയ്യുകയുള്ളൂ

അസം മേഖാലയ ഒഴികെ വടക്ക് കിഴക്കൻ മേഖലയിൽ വ്യാപകമായും കേരളം കിഴക്കൻ മധ്യപ്രദേശ് ദക്ഷിണ കർണാടക എന്നിവിടങ്ങളിലും കനത്ത മഴക്ക് സാധ്യതയുണ്ട്

ഡൽഹിയിലെ പഹാഡ്ഗഞ്ചിലെ ഒരു ഹോട്ടലിൽ നിന്ന് ചൊവ്വാഴ്ച രാത്രിയിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത്

പശ്ചിമ മഹാരാഷ്ട്രയിലെ സംഗ്ലി മിറാജ് കുപ്വാസിലും ഉത്തരമറാത്തയിലെ ജൽഗാവ് മുനിസിപ്പാലിറ്റിയിലുമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്

കനത്ത സുരക്ഷയിലാണ് അദ്ദേഹത്തെ ജയിലേയ്ക്ക് മാറ്റിയത്

റോഡുകളുടെ പരിതാപകരമായ അവസ്ഥയും ആരോഗ്യമേഖലയിലെ സൌകര്യകുറവും പരിഹരിക്കണമെന്ന് നോട്ടീസിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഒരു മാസത്തിനകം മറുപടി നൽകണമെന്നും കമ്മീഷൻ ആന്ധ്രാപ്രദേശ് ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി

ബിർമിംഗ്ഹാമിലെ എഡ്ജ്ബാസ്റ്റനിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം മൂന്നരയ്ക്കാണ് മത്സരം മൂന്നു തവണ മാത്രമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ വിജയക്കൊടി പാറിച്ചത് വിരാട് കോഹ്ലി നായകനായ ശേഷം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ആദ്യ ടെസ്റ്റ് പരമ്പരയാണിത്

സ്പാനിഷ് താരം പാബ്ലോ അബിയാനെ മൂന്നു ഗെയിം നീണ്ടു നിന്ന പോരാട്ടത്തിലാണ് ശ്രീകാന്ത് കീഴടക്കിയത്

കൊറിയയെ രണ്ടു ഗോളുകൾക്ക് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ടും കാർട്ടർ ഫൈനലിലെത്തി നാളെ നടക്കുന്ന കാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ ഇന്ത്യ അയൽലാൻഡിനെയും ഇംഗ്ലണ്ട് നെതർലാൻഡ്സിനെയും നേരിടും

ലണ്ടൻ കോടതി ജഡ്ജി എമ്മാ ആർബത്നോട്ടാണ് ഇന്നലെ പാർപ്പിട സൌകര്യം ഉറപ്പാക്കാനായി സെല്ലിന്റെ വീഡിയോ ചിത്രം സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്